ചരമ വാർഷിക ദിനത്തിൽ രാജ്യം അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു

വ്യാപിപ്പിക്കുന്നതിന് അനുമതി

കുറഞ്ഞു

പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിനുള്ള തയ്യാറെടുപ്പുകൾ അന്തിമ ഘട്ടത്തിൽ

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുൻ പ്രധാന്മ്പ്രീയ്ക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു വാജ്പേയുട്ടെ ഛായചിത്രം ന്യൂഡൽഹിയിലെ ഇന്ത്യൻ കൌൺസിൽ ഏഫോർ കൾച്ചറൽ റിലേഷൻസ് ആസ്ഥാനത്ത് രാഷ്ട്രപ്പത്ി രാംനാഥ് കോവിന്ദ് അനാച്ഛാദനം ചെയ്തു

സ്വാതന്ത്ര്യ ദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പദ്ധതി പ്രഖ്യാപിച്ചത്

തീരദേശ അതിർത്തി പ്രദേശങ്ങളിലെ ആയിരത്തിലധികം സ്കൂളുകളിലും കോളേജുകളിലും എൻ സി സി യുടെ പ്രവർത്തനം വ്യാപിപ്പിക്കും അതിർത്തി പ്രദേശങ്ങളിലെ എൻ

സി യൂണിറ്റുകൾക്ക് കരസേന പരിശീലനം നൽകും

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ലോക രാജ്യങ്ങളുമായി താരതമൃം ചെയ്യുമ്പോൾ കോവിഡ് മരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ

കൃത്യമായി കോവിഡ് മാനദണ്ഡ്രങ്ങൾ പാലിച്ചു കൊണ്ട് സമ്മേളനം നടത്താൻ രാജ്യസഭാ ്അധ്യക്ഷൻ എം വെങ്കയ്യ നായിഡുവും ലോക്സഭ സ്പീക്കർ ഓം ബിർളയും കഴിഞ്ഞ മാസം തീരുമാനിച്ചിരുന്നു സാമൂഹിക അകലം പാലിക്കുന്നതിനായി ഇരു സഭകളുടെയും ചേമ്പറും ഗാലറികളും ഉൾപ്പെടെ അംഗങ്ങളുടെ ഇരിപ്പിടങ്ങൾക്കായി സജ്ജീകരിക്കും അടുത്ത ആഴ്ചയോടെ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കണമെന്ന് ശ്രീ

വെങ്കയ്യ നായിഡു നിർദേശം നൽകി

പാരിസ്ഥിതിക പ്രതിസന്ധി മറികടക്കാൻ മൌറീഷ്യസ് ഗവൺമെന്റ് ഇന്ത്യയുടെ സഹായം തേടിയതിനെത്തുടർന്നാണ് ഈ നടപടിയെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു

ഒരു സമയം ഒരാൾക്ക് മാത്രമേ പ്രവേശനം അനുവദിക്കു കോവിഡ് പ്രതിരോധ മാർഗനിർദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും തീർത്ഥാടകർക്ക് നിർദേശം നൽകിയിട്ടുണ്ട് ഇതിനു പുറമേ ജമ്മു കശ്മീരിലെ ഭദ്രവാഹിൽ നിന്നുള്ള കൈലാസ യാത്രയും ഇന്ന് മുതൽ പുനരാരംഭിച്ചു

പരിപാടിയിലേക്കുള്ള ആശയങ്ങൾ പങ്കു വയ്ക്കാൻ പ്രധാനമന്ത്രി ജനങ്ങളെ ക്ഷണിച്ചു

എം എസ് ലിങ്ക് ഉപയോഗിച്ചും നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ സാധിക്കും

സി യുടെ പ്രതിജ്ഞാബദ്ധതയാണ് ഈ പദ്ധതിക്ക് പിന്നിലെന്ന് ഊർജ മന്ത്രാലയം വ്യക്തമാക്കി

പ്രസിഡന്റ് തിരഞ്ഞെട്ടുപ്പിൽ വിജയിക്കുകയാ ണെങ്കിൽ ഇന്ത്യ യു

തീവ്രവാദ്ദ് കാലാവസ്ഥ വ്യതിയാനം തുടങ്ങിയ വെല്ലുവിളിക്കൾ നേരിടുന്നതിന് ഇന്ത്യയുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി

ഇതിനെ തുടർന്ന് നദീതീരങ്ങളിൽ താമസിക്കുന്നവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി

നിരവധി കനാലുകളും നദികളും നിറഞ്ഞു കവിഞ്ഞു എല്ല ജില്ലാ ഭരണകൂടങ്ങൾക്കും സംസ്ഥാന സർക്കാർ ജാഗ്രത മുന്നറിയിപ്പ് നൽകി കൺട്രോൾ റൂമുകളും ആരംഭിച്ചിട്ടുണ്ട് ഹൈദരാബാദിൽ നിരവധി പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട് ഗതാഗത കുരുക്കും അനുഭവപ്പെടുന്നു

ബീഹാർ ഝാർഖണ്ഡ് മധ്യപ്രദേശ് ഒഡീഷ രാജസ്ഥാൻ ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിലാണ് എന്നീ തൊഴിൽദിനങ്ങൾ സൃഷ്ടിച്ചത്